സംയോജിത സഹകരണ വികസന പദ്ധതി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും സഹകരണ പ്രസ്ഥാനത്തിന് ഉണർവ്വ് നൽകി ഗ്രാമീണ സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് പദ്ധതി കാർഷിക മേഖലയിൽ വേണ്ടത്ര പിന്തുണ നൽകി കർഷകനെ ഈ രംഗത്ത് നിലനിർത്താൻ പദ്ധതി വിഭാവനം ചെയ്യുന്നു ദീൻ ദയാൽ ഉപാധ്യായ കർഷക ക്ഷേമ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കുളള വായ്പ പ്രധാനമന്ത്രി വിതരണം ചെയ്യും ഒരു ലക്ഷം രൂപ വരെയുള്ള ബഹുമുഖ വായ്പാ പദ്ധതിയുടെ കീഴിൽ രണ്ട് ശതമാനം പലിശ നിരക്കിൽ കർഷകന് വായ്പ ലഭിക്കും

ഗ്രാമ നഗര പരിധിയിലെ പ്യൂബ്പ്പെട്ടവരായ ഒന്നര കോടി കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകിയതായി പ്രധാനമന്ത്രി പറഞ്ഞു

പത്ത് കോടി പട്ടികവർഗ്ഗക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പട്ടികജാതി പട്ടികവർഗ്ഗ ഭേദഗതി ബില്ലും മന്ത്രിസഭാ അംഗീകരിച്ചു ദേശീയ സഫായി കർമ്മചാരി കമ്മീഷന്റെ കാലാവധി മൂന്ന് വർഷം കൂടി ദീർഘിപ്പിക്കും

അഞ്ച് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കും

രണ്ടംഗ അംഗങ്ങളായ ബഞ്ചിലെ എ കെ സിക്രിയും അശോക് ഭൂഷണും തമ്മിലുണ്ടായ അഭിപ്രായ വൃത്യാസത്തെ തുടർന്നാണ് കേസ് വിശാല ബഞ്ചിന് വിടാൻ തീരുമാനമായത് അഴിമതി വിരുദ്ധ വിഭാഗം അന്വേഷണ കമ്മീഷനുകളുടെ രൂപീകരണം വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണം ഭൂനികുതി പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം എന്നീ വിഷയങ്ങളിൽ ബഞ്ച് യോജിപ്പ് പ്രകടിപ്പിച്ചു പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനത്തിനുള്ള അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം ഡൽഹി ഗവൺമെന്റിനാണെന്നും കോടതി നിരീക്ഷിച്ചു

വൻ പങ്കാളിത്തംകൊണ്ടും ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി സമ്പുഷ്ടമായിരുന്നു പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

അടുത്ത ഏപ്രിൽ മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി നിതീഷ്കുമാർ സംസ്ഥാന നിയമസഭയെ അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് വിരമിച്ചവർ ഒഴികെയുള്ള എല്ലാവരും പെൻഷന് അർഹരാണ്

നിലവിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നത്

ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വ്യോമയാന പദ്ധതിയാണ് ഉഡാൺ എന്ന് ആകാശവാണിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ജയന്ത് സിൻഹ പറഞ്ഞു ഡൽഹി വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കാൻ ഹിൻഡൺ എയർപോർട്ട് താമസിയാതെ പ്രവർത്തനക്ഷമമാക്കുമെന്ന് ശ്രീ

സംസ്ഥാനത്ത് ഗുണ്ട മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം വ്യാപകമാണ് ബ്ലേയ്ഡ് മാഫിയയും സജീവമാണ് ഷുക്കൂർ വധക്കേസിൽ ക്കൂല്കുറ്റം ചുമത്തിയ നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി

എമ്മിന്റേതതെന്നും അക്രമ രാഷ്ട്രീയത്തെ മുഖ്യമന്ത്രി തളന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ശ്രീ

എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും

എം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ വൈകിട്ട് നാലിന് സി

അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും

ജെ

യുടെ ക്ലസ്റ്റർ യോഗങ്ങൾക്ക് ഇന്നു തുടക്കമാകും തിരുവനനതനരം അറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലങ്ങൾ ചേർന്നുള്ള തിരുവനന്തപുരം ക്ലസ്റ്ററിലെ ശക്തി കേന്ദ്ര നേതാക്കളുടെ യോഗം ഇന്ന് ദ മണിക്ക് പത്തനംതിട്ടയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൽഘാടനം ചെയ്യും

ബാഗ്ലൂരിലെ പ്രമുഖ ആർട്ടിസ്റ്റ് മൊഹമ്മദ് സജിത്ത് വരച്ച ഡൂഡിൽ ഉൾപ്പെടുത്തി ഗൂഗിൽ മധുബാലയോടുള്ള ആദരവ് അറിയിച്ചു ഒരു റിപ്പോർട്ട്

സിനിമകളിൽ സ്ത്രീകളുടെ വൃക്തിത്വവും സൌന്ദരൃവും പ്രതീകാത്മകമായി പ്രതിഫലിപ്പിച്ച മധുബാല ദി ബ്യൂട്ടി വിത്ത് ട്രാജഡി എന്നും ദി വീനസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നും അറിയപ്പെട്ടിരുന്നു മധുബാല ഒമ്പതാം വയസിൽ ബസന്ത് എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്താണ് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നത്

ദിലീപ് കുമാർ ദേവാനന്ദ് കിഷോർകുമാർ തുടങ്ങിയ പ്രമുഖ നടൻമാരോടൊപ്പം മധുബാല അഭിനയിച്ചിട്ടുണ്ട് ദുലാരി ബേക്കസൂർ തരാന മിസ്റ്റർ ആന്റ് മിസിസ് ചൽത്തി കാ നാം ഗാഡി തുടങ്ങിയ ചിത്രങ്ങളിൽ നായികാ വേഷത്തിൽ അഭിനയ മികവ് കാഴ്ച വച്ചു

മധുബാലയുടെ സ്വകാര്യ ജീവിതവും ഏറെ പ്രർച്ച ചെയ്യപ്പെട്ടിരുന്നു